എല്ലാ വിഭാഗങ്ങളുടേയും ക്ഷേമത്തിനായി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

എസ്

കാർമേഘാവൃതമായ ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ജി എസ് എൽ

രാജ്യത്തിന്റെ ചരിത്രപരമായ ചന്ദ്രയാത്രയുടെ തുടക്കമാണിതെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോ

വിജയകരമായ വിക്ഷേപണത്തിന് അദ്ദേഹം ഐ

ആർ

കഴിഞ്ഞ തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം ജി എസ് എൽ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക ചരിത്രത്തിലാദ്യമായി ചന്ദ്രോപരിതലത്തിന്റെ ദക്ഷിണധ്രുവത്തിൽ പരീക്ഷണം നടത്തുന്ന രാജ്യമായി ചന്ദ്രയാൻ രണ്ടിലൂടെ ഇന്ത്യ മാറുമെന്നും ശ്രീ മോദി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു പൂർണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദൌതൃമാണ് ചന്ദ്രയാൻ രണ്ട് എന്നത് ഏറെ സന്തോഷം പകരുന്നുവെന്നും ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇതിലൂടെ ലഭിക്കുമെന്നും ശ്രീ

ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ തകരാർ പരിഹരിക്കാനായത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ ആത്മവിശാസത്തിന്റെയും കഴിവിന്റെയും ഉത്തമ ഉദാഹരണമാണെന്നും ശ്രീ

രാഷ്ട്രപതി രംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു എന്നിവരും ഐ

ആർ

ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തറയിൽ നിന്നും നിന്നും ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇന്ത്യ ചന്ദ്രയാൻ രണ്ട് വിജയകരമായി വിക്ഷേപിച്ചത്

എസ് ആർ

ബഹിരാകാശ ചരിത്രത്തിൽ ഐ എസ് ആർ ഒ ടീം പുതീയ ചരിത്രമെഴുതിയതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

ബഹിരാകാശ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ കരുത്താർന്ന വളർച്ചയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

ബാങ്കിംഗ് മേഖലയിൽ കേന്ദ്രഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരങ്ങളുടെ ഫലമാണ് ഇതെന്ന് ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ ധനമന്ത്രി അറിയിച്ചു

ഒരു റിപ്പോർട്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ ദാരിദ്ര്യ വിമുക്തമാക്കാനും സാമ്പത്തിക വളർച്ച ഉറപ്പാ ക്കാനും അടിസ്ഥാന മേഖലയിലെ വികസനം കൂടിയേ തീരൂ കർഷകർ സൈനികർ തൊഴിലാളികൾ കച്ചവടക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് നരേന്ദ്ര മോദി ഗവൺമെന്റ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

ജാവ്ദേക്കർ പറഞ്ഞു

ഭരണഘടനയുടെ പത്താം പട്ടികൂയിനുസരിച്ച് വിപ്പ് നൽകാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ് സീഷയത്തിലെ അവൃക്തത സുപ്രീംകോടതി നാളെ പരിശോധിക്കാനിട്ട്യു്ണ്ടെന്നും ശ്രീ റാവു ബംഗളുരൂവിൽ മാധൃമങ്ങളോട് പറഞ്ഞു വിഷയത്തിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണം അറിഞ്ഞ ശേഷം മാത്രമേ സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നത്താനാവുകയുളളൂ എന്നും കോൺഗ്രസ് അദ്ധ്യക്ഷൻ പറഞ്ഞു അതിനിടെ വിശ്വാസപ്രമേയം സംബന്ധിച്ച ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ് എന്നാൽ കർണ്ണാടക നിയമസഭയിലെ സംഭവ വികാസങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെ തകിടം മറിയ്ക്കുന്നതാണെന്ന് ബി ജെ

വിഷയത്തിൽ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകുന്ന സ്പീക്കർ അധികാരം ദുർവിനിയോഗം നടത്തുകയാണെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി മുരളീധർ റാവു ഹൈദരബാദിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കുതിരക്കച്ചവടം നടത്താൻ സ്പീക്കർ കൂട്ടുനിൽക്കുകയാണെന്നും ബി ജെ

മുഖ്യമന്ത്രി അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിന്മേലുളള ചർച്ചകൾക്കു പകരം അപ്രസക്തമായ വിഷയങ്ങളാണ് സഭയിൽ ചർച്ച ചെയ്യുന്നതെന്നും ഭൂരിപക്ഷം തെളിയിക്കാതെ മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ബി ജെ പി അംഗീകരിക്കില്ലെന്നും ശ്രീ റാവു വ്യക്തമാക്കി

ചന്ദ്രശേഖരനും എട്ട് ഡയറക്ടർമാർ ക്കുമെതിരായ മാനനഷ്ടക്കേസിലെ തുടർ നടപടികൾ ബോംബെ ഹൈക്കോടതി റദ്ദാക്കി

രത്തൻ ടാറ്റാ അടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരുന്നു

ആചാര്യ ദേവ് പ്രത് ചുമതലയേറ്റു

ഐ

ഇതിൽ മനഃപൂർവ്വം രാജ്യത്തെ ഒറ്റുകൊടുത്തവരെ നീതിന്യായ വകുപ്പിന് കൈമാറിയിട്ടുള്ളതായും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ ടെഹ്റാനിൽ പറഞ്ഞു

കാസർകോഡ് കണ്ണൂർ ജില്ലകളിൽ നാള്ടിക്റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ സൂചന കാസർകോഡ് കണ്ണൂർ ജില്ലകളിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു

കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്